ലോക്ഡൌൺ ഇളവൂണ്ടായാലും പൊതുഗതാഗതം അനുവദിക്കില്ലെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ്

ഫലം തീർച്ചപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നതായും മന്ത്രി

ഗ്രീൻ സോണിൽ ഈ മാസം നാല് മുതൽ കൂടുതൽ ഇളവുകൾ അനുവദിച്ചേക്കും രോഗികൾ ഇല്ലാത്തതിനാലാണ് ജില്ലകളെ ഗ്രീൻ സോണിൽ ഉൾപ്പെടുത്തിയത്

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തൃശൂർ പാലക്കാട് ക്ലോഴിക്കോട് മലപ്പുറം കാസർകോട് എന്നീ ജില്ലകളാണ് സംസ്ഥാനത്ത് ഓറഞ്ച് സോണിലുള്ളത് കേന്ദ്ര ആരോഗ്യ സ്ക്രെട്ടറി പ്രീതി സുധൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് ഇത് സംബന്ധിച്ചു കത്ത് അയച്ചു ആഴ്ചതോറും പട്ടിക പൂതുക്കുമെന്നും സ്ഥീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് നിർദ്ദേശം നൽകുമെന്നും കത്ത് വൃക്തമാക്കുന്നു കോവിഡ് പ്യാപനം തടയുന്നതിന് പ്രഖ്യാപിച്ച രണ്ടാം ഘട്ട ലോക്ഡൌൺ ്തിങ്കളാഴ്ചയാണ് അവസാനിക്കുന്നത് ടോം ജോസ് ലോക്ഡൌൺ ഇളവ് സംബന്ധിച്ച് കേന്ദ്ര മാനദണ്ഡങ്ങൾ സംസ്ഥാനം പൂർണ്ണമായും പാലിക്കുമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് റെഡ് ഗ്രീൻ സോണിൽ പുനക്രമീകരിക്കുന്നത് സംസ്ഥാനത്തെ വിദഗ്ധ സമിതി പരിശോധിക്കുമെന്ന് ശ്രീ ടോം ജോസ് തിരുവനന്തപുരത്ത് വാർത്താലേഖകരോട് പറഞ്ഞു

പരിശോധനാ ഫലത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് വ്യത്യാസം വരാറുണ്ടെന്ന് അദ്ദേഹം തിരുവന്തപുരത്ത് ് വാർത്താലേഖകരോട് പറഞ്ഞു ഫലം തീർച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും ആദ്യ ഫലം അനുസരിച്ചുള്ള തുടർ നടപടികളാണ് നിലവിൽ സ്വീകരിച്ച് വരുന്നതെന്നും അദ്ദേഹം വൃക്തമാക്കി

ആവശ്യമെങ്കിൽ സാമ്പിൾ സ്ഥിരീകരണത്തിനായി ആലപ്പുഴയിലെ വൈറോളജി ലാബിലേയ്ക്ക് അയയ്ക്കുമെന്നും മന്ത്രി പറഞ്ഞു

നെയ്യാറ്റിൻകരയിലെ കോവിഡ് രോഗികളുടെ പ്രൈമറി കോണ്ടാക്ടുകൾ നിരീക്ഷണത്തിലാണെന്നും ഫലം ഇന്ന് കിട്ടുമെന്നും മന്ത്രി അറിയിച്ചു

മലപ്പുറത്തും കാസർക്കോട്ടുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

ചാത്തന്നൂർ കോവിഡ് ഹോട്ട് സ്പോട്ട് ആയ സാഫ്ചര്യത്തിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം തടയുന്നിതിനാണ് നടപടി

അതേ സമയം ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ തുടങ്ങി സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ച് പോകാൻ താത്പര്യമുള്ളവരെ കണ്ടെത്തുന്നതിനാണ് നടപടിയെന്ന് മന്ത്രി വി

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തൊഴിൽ മേഖല ഏറ്റവുമധികം വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് തൊഴിലാളിദ്ദിനം ആചരിക്കുന്നത്

തൊഴിലാളികൾക്കു നേരെയുള്ള ചൂഷണത്തിനും നിർബന്ധിത അമിതാദ്ധ്വാനത്തിനുമെതിരെ ചിക്കാഗോയിൽ നടന്ന പ്രക്ഷോഭത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവാകൃമാണ് തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങളുടെ ആധാരം

ഇടുക്കി രൂപതയെ കരുത്തുറ്റ നേതൃത്വത്തിലൂടെ പുരോഗതിയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മലയോര മേഖലകളിലെ ജനങ്ങളുടെ ഭൂപ്രശ്നങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ ആനിക്കുഴിക്കാട്ടിലിന് കഴിഞ്ഞു ഇതിലൂടെ ഹൈറേഞ്ചിലെ പാവപ്പെട്ട കർഷകന്റെയും സാധാരണക്കാരന്റെയും ശബ്ദമായി മാറി